ഒരു ലക്ഷം കോടിയിലേറെ രൂപ ഇതിനകം പദ്ധതിയിലൂടെ കർഷകർക്ക് കൈമാറിയതായി പ്രധാനമന്ത്രി പറഞ്ഞു

സോയിൽ ഹെൽത്ത് കാർഡ് യൂറിയയുടെ ്യൂനീം കോട്ടിങ്ങ് സോളാർ പമ്പുകൾ തുടങ്ങിയവ ഇതിന് ഉദാഹരണങ്ങളാണ്

കാർഷിക വിളകൾക്ക് നൃായവില ഉറപ്പാക്കാൻ കേന്ദ്ര സർക്കാർ നടപടികൾ സ്വീകരിച്ചതായും പ്രധാനമന്ത്രി പറഞ്ഞു കാർഷിക നിയമങ്ങൾക്കെതിരെ തെറ്റായ കാരൃങ്ങൾ പ്രചരിപ്പിക്കപ്പെടുന്നതായും ചിലർ ഇതിനെ രാഷ്ട്രീയ ലാഭത്തിനായി ഉപയോഗിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു കരാർ കൃഷിയിലൂടെ കർഷകർക്ക് കൃഷി ഭൂമി നഷ്ടപ്പെടുമെന്ന തരത്തിൽ ദുഷ്പ്രചാരണങ്ങൾ നടക്കുന്നതായും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഗ്രാമീണ കർഷകരുടെ ജീവിതം സുഗമമാക്കാനുള്ള നടപടികളാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചു വരുന്നതെന്നും ശ്രീ നരേന്ദ്രമോദി അറിയിച്ചു

പിഎം കിസാൻ നിധിയിലൂടെ വിതരണം ചെയ്ത ധനസഹായം കർഷകർക്ക് ഏറെ സഹായകരമാകുമെന്ന് കൃഷിമന്ത്രി പറഞ്ഞു

അടുത്ത ഘട്ട ചർച്ചയ്ക്കുള്ള തീയതിയും സമയവും തീരുമാനിക്കാൻ സംഘടനകളോട് കത്തിലൂടെ അഭ്യർത്ഥിച്ചു തുറന്ന മനസ്സോടെ ചർച്ചകൾ നടത്താനും പ്രതിഷേധിക്കുന്ന കർഷകർ ഉന്നയിക്കുന്ന പ്രശ്നങ്ങളിൽ യുക്തിസഹജമായ പരിഹാരങ്ങളിൽ എത്തിചേരാനും കേന്ദ്ര സർക്കാർ തയാറാണെന്ന് കാർഷിക മന്ത്രാലയ ജോയിന്റ് സെക്രട്ടറി വിവേക് അഗർവാൾ കത്തിൽ വ്യക്തമാക്കി

കൂടുതൽ വിവരങ്ങളുമായി ലക്ഷ്മി ശ്രീ വിജയ

കഴിഞ്ഞദിവസം ഇരുപത്തി മൂവായിരത്തോളം പുതിയ കേസുകൾ മാത്രമാണ് റിപ്പോർട്ട് ചെയ്തത്

രാജ്യത്താകെ ആരോഗ്യമേഖലയിലെ അടിസ്ഥാന സൌകര്യങ്ങൾ വർധിപ്പിച്ചതും കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ച ചികിത്സ മാർഗ്ഗനിർദ്ദേശങ്ങൾ സംസ്ഥാനങ്ങളും കേന്ദ്രഭരണപ്രദേശങ്ങളും നല്ല രീതിയിൽ നടപ്പാക്കിയതും ആരോഗ്യ പ്രവർത്തകരുടെ ആത്മാർഥതയുമാണ് രോഗമുക്തി നിരക്ക് വർദ്ധിക്കാനും മരണ നിരക്ക് കുറയ്ക്കാനും സഹായകമായത് എന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ന്യൂസ് ഡെസ്ക് ആകാശവാണി

വിവിധ സംസ്ഥാനങ്ങളിലായി പരിശീലകർക്കുള്ള പ്രത്യേക പരിശീലന പരിപാടികൾ നടന്നു ജില്ലകളിൽ ന്നിന്നുള്ള ഏഴായിരത്തോളം ട്രെയിനികൾക്കും പരിശീലനം നൽകി

ഉൾപ്പെടെയുള്ള പ്രമുഖർ അടൽ ബിഹാരി വാജ്പെയിക്ക് ഇന്ന് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു ന്യൂഡൽഹിയിലെ അടൽ സ്മാരകത്തിൽ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദും പ്രധാനമന്ത്രി നരേന്ദ്ര മോദിയും പുഷ്പാർച്ചന നടത്തി കേന്ദ്രമന്ത്രിമാരായ അമിത് ഷാ രാജ്നാഥ് സിംഗ് നിർമല സീതാരാമൻ പ്രകാശ് ജാവദേക്കർ പിയൂഷ് ഗോയൽ ഉൾപ്പെടെയുള്ളവരും മുൻപ്രധാനമന്ത്രിക്ക് പുഷ്പാർച്ചന നടത്തി വാജ്പേയിയുടെ ദീർഘവീക്ഷണം രാജ്യത്തെ വികസനത്തിലേക്ക് നയിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ജന്മവാർഷികത്തോടനുബന്ധ്രിച്ച് ഉത്തർപ്രദേശിലും ഗുജറാത്തിലും വിപുലമായ പരിപാടിക്കൾ സ്ംഘടിപ്പിച്ചിട്ടുണ്ട്

ഇന്ത്യയിൽ ആധുനിക വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുന്നതിന് വലിയ സംഭാവനയാണ് അദ്ദേഹം നൽകിയത് പണ്ഡിറ്റ് മദൻ മോഹൻ മാളവൃയ്ക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു

തിരുപ്പിറവിയുടെ ഓർമപുതുക്കാനാണ് ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ ക്രിസ്മസ് ആഘോഷിക്കുന്നത് ലോകം എന്നും പ്രത്യാശയോടെ ആഘോഷിക്കുന്ന ക്രിസ്മസിന് ഇത്തവണ പക്ഷെ പതിവ് പകിട്ടും തിരക്കുമില്ല കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിലുള്ള യാത്രാവിലക്കുകളും നിയന്ത്രണങ്ങളും ആഘോഷങ്ങൾക്ക് മങ്ങലേൽപ്പിച്ചു

ആഘോഷപരിപാടികൾ കേരളത്തിലെ ക്രൈസ്തവരും പ്രാർത്ഥനാ നിർഭരമായി മനസ്സുമായി ക്രിസ്മസ് ആഘോഷിക്കുകയാണ്

ആശയങ്ങളും ലോകത്തെ ലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് ശക്തി പകരുന്നതാണെന്ന് അദ്ദേഹം ആശംസ സന്ദേശത്തിൽ പറഞ്ഞു

ഗോവൻ പോലീസ് കാക്കി യൂണിഫോമിന് പകരം ഇന്നലെ ചുവന്ന സാന്താക്ലോസ് സ്യൂട്ട് അണിഞ്ഞാണ് ഡ്യൂട്ടി നിർവഹിച്ചത്